പരാതിക്കാരിയുടെ അപ്പകടം സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് നാളെ സ്മ്ർപ്പിക്കണമെന്ന് സുപ്രീംകോടതി

സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജമ്മു കാശ്മീർ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി

സിംഗിൾസിൽ ഇന്ത്യൻ താരം സൈന നെഹ്വാൾ തായ്ലന്റ് താരത്തെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിലെത്തി

മുത്തലാഖ് രാജ്യത്ത് നിലനിൽക്കാൻ കാരണം മുൻ ഗവൺമെന്റുകൾ തുടർന്നുവന്ന വോട്ടു ബാങ്ക് രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ കേന്ദ്രമന്ത്രി വിജയ് ഗോയലും സന്നിഹിതനായിരുന്നു മുത്തലാഖ് നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും തുല്യതയ്ക്കും വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാലങ്ങളായി മുസ്തിം വനിതകൾക്കെതിരെ നിലനിന്ന അനീതിയാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കെറിഞ്ഞതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതുമൂലം ദുരിതമനുഭവിച്ച മുസ്തിം വനിതകളുടെ ധൈര്യത്തെ ശ്രീ

രാഷ്ട്രപതി ഒപ്പിട്ട് നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുത്തലാഖ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമായി മാറുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

ഉന്നാവോ പരാതിക്കാരി ചീഫ്ജസ്റ്റിസിന് എഴുതിയ കത്ത് തനിക്ക് മുന്നിൽ എത്താത്തിന്റെ കാരണത്തെക്കൂറിച്ച് റിപ്പോർട്ട് നൽകാൻ സെക്രട്ടറി ജനറലിനോടും കോടത്വ ഉത്തൂർവിട്ടു

ചീഫ് ജസ്റ്റിസ് നടപടി കൈക്കൊണ്ടില്ല എന്ന് പ്രതിഫലിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത ന്റ്റൽകീയതായി ജസ്റ്റിസ് ദീപക് ഗുപ്ത അനിരുദ്ധ ബോസ് എന്നിവർ അടങ്ങിയ ബഞ്ച് വൃക്തമാക്കി

ചീഫ് ജസ്റ്റിസിനെ കൂടാതെയാണിത്

പ്രസ്തുത ഹർജികൾ ഭരണഘടനാ ബഞ്ചിന് വിടുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് മാറ്റിയത്

സംവരണത്തിനുള്ള മാന്ദണ്ഡമായി സാമ്പത്തികാവസ്ഥയെ പരിഗണിക്കാനാകില്ലെന്നും അതിനാൽ സാമ്പത്തിക സംവരണ നിയമം ഭരണഘടനാ സാധുതയില്ലാത്താണെന്നുമാണ് ഹർജിക്കാരുടെ വാദം

ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ്യുടെ സാന്നിധൃത്തിൽ ബി ജെ

ആസ്ഥാനത്തു നടന്നിച്ചുടങ്ങിൽ അദ്ദേഹത്തിന്റ ഭാര്യ അമീറ്റ സിംഗും ബി ജെ

ഇന്നലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവച്ച ശ്രീ

എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എല്ലാപേരുടെയും വിശ്വാസം എന്ന നരേന്ദ്രമോദിയുടെ വീക്ഷണത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഒരു റിപ്പോർട്ട് ക്വാൻസർ രോഗികൾക്ക് ആരോഗൃ സൌകര്യങ്ങളും കുറഞ്ഞ ചികിത്സയും ലഭ്യമാക്കുന്നതുമായി സംബന്ധിച്ച ചോദ്യത്തിന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഡോ

നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരൂത്തിൽ ഇരുപതിനായിരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്

രക്താതിസമ്മർദ്ദം പ്രമേഹം ഹൃദയ ശ്വാസുക്കോൾ രോഗങ്ങൾ സ്തനാർബുധം തുടങ്ങി പകർച്ചാ വ്യാധി ഇതര രോഗ്ങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിൽ സൌജന്യമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാൻസർ തടയുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗൃ പരിരക്ഷ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു

നേരത്തെ രാജ്യത്ത് ചികിത്സാ രംഗത്ത് ആവശ്യമായ സൌകര്യങ്ങൾ ലഭ്യമല്ലെന്ന് കാണിച്ച് സമാജ് വാദി പാർട്ടി നേതാവ് വിശ്വംഭർ പ്രസാദ് നിഷാദ് സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബോട്ടുകളിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്

ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നടക്കുന്ന പോസ്റ്റൽ സർക്കിൾ തലവന്മാരുടെ യോഗത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിവർത്തനം സാധ്യമാകാൻ ആവശ്യമായ ചിന്ത നവീകരണം മികച്ച പ്രകടനം എന്നിവയിലൂന്നി പ്രവർത്തിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരെ ആഹ്വാനം ചെയ്തു രാജ്യത്തുള്ള സ്റ്റാർട്ട് അപ് തരംഗം പ്രയോജനപ്പെടുത്താൻ തപാൽവകുപ്പ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഒയുടെ ടെക്നിക്കൽ ലൈയ്സൺ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി റഷ്യക്കും അയൽരാജ്യക്കാർക്കും ഗുണം ലഭിക്കുന്നതിനായി രാജ്യങ്ങളുടെ ശൂന്യാകാശ ഏജൻസികളും സ്ഥാപനങ്ങളുമായി ചേർന്ന് യൂണിറ്റ് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂസ്ത്ര്ഹിയിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പ്രിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ കൌണ്ടുപന്ന കരാറിൽഒപ്പുവയ്ക്കാനും കേന്ദ്രമന്ത്രിസഭ അനുവാ്ദം നൽകി ശൂന്യാകാശം സമാധാനപരമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള ഐ എസ് ആർ ഒ ബൊളീവിയ കരാറിനും മന്ത്രിസഭ അംഗീകാരം നൽകി

കശ്യപ് എച്ച് എസ് പ്രണോയ് എന്നിവരും ആദ്യ റൌണ്ടിൽ വിജയിച്ചിട്ടുണ്ട് മിക്സഡ് റൌണ്ട്സിൽ സാത്വിക് സായ്രാജ് രൺകി റഡ്ഡി അശ്വിനി പൊന്നപ്പ സഖ്യം ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാക്കളായ ചാൻ പെൻ സൂൺ ഗോഹ് ലിയൂ യിങ് സഖ്യത്തെ പരാജയപ്പെടുത്തി

ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരോട് ഗവൺമെന്റ് നിർദ്ദേശിച്ചു